അടുത്ത വർഷം ഏപ്രിൽ മാസത്ത്യോടെ ബി

ക്യാൻസർ ചികിത്സയെ സഹായിക്കുന്ന കണ്ടുപിടിത്തത്തിന് മൂന്ന് ശാസ്ത്രജ്ഞർക്ക് വൈദൃശാസ്ത്ര നൊബേൽ

ഇരു രാജ്യങ്ങളും തമ്മിൽ പുതുതായി നിലവിൽ വന്ന വിവര കൈമാറ്റ ചട്ടക്കൂട് അനുസരിച്ചാണ് വിവരങ്ങൾ ലഭ്യമായത് വിദേശ രാജ്യങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കള്ളപ്പണത്തിനെതിരായ പോരാട്ടത്തിൽ ഇത് നാഴികക്കല്ലാണ് ഇന്ത്യ ഉൾപ്പെടെ സ്വിറ്റ്സർലന്റിന്റെ ഫെഡറൽ നികുതി ഭരണകൂടം സ്വിസ് ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ കൈമാറിയത്

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

സി

മേഖലയിലെ മലിനീകരണത്തിന്റെ തോത് ശേഖരിക്കുമെന്നും ആവശ്യമുള്ളിടത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു അന്തരീക്ഷ മലിനീകരണത്തെ ചെറുക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

പൊതുജന പങ്കാളിത്തത്തിലൂടെ വായുമലിനീകരണ തോത് കൂറയ്ക്കുവാനുള്ള നടപടികൾക്ക് ആരംഭം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത് സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു

വാഹനങ്ങളിൽ നിന്നുമുള്ള മലിനീകരണത്തിന് പരിഹാരം കാണാൻ ബി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ മഹ്ാർാഷ്ട്ര ഗവൺമെന്റിനോട് ഉത്തരവിട്ട കോടതി പരിസ്ഥിതി കീ്യ്യാലയത്തോട് കേസിൽ കക്ഷിചേരാനും നിർദ്ദേശിച്ചു

ആരെ കോളനിയിലെ മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റുന്നതിനെതിരെ നിയമവിദ്യാർത്ഥി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര അശോക് ഭൂഷൺ എന്നിവരടങ്ങുന്ന ബഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരെ കോളനിയിൽ ഇനി ഒരുമരം പോലും മുറിക്കില്ലെന്നും മരം മുറിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചതായും മഹാരാഷ്ട്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു

ജെ

മഹാരാഷ്ട്ര ബി

മുകേഷ് മോഡി വീരേന്ദ്ര മോഡി എന്നിവരുടെയും കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ കെട്ടിടങ്ങൾ സ്ഥിരനിക്ഷേപങ്ങൾ എന്നിവയും ഉടമകളുടെ വസ്തുവകകളുമാണ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് രാജസ്ഥാൻ ഹരിയാന ന്യൂഡൽഹി ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ള ഇവരുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടി

കത്വ പൂഞ്ച് രജൌരി എന്നീ ജില്ലകളിലെ അതിർത്തിയിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ ആളപായമില്ല

നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പിന്നീട് മെറിനാക്കിൽ നടക്കുന്ന ചടങ്ങിൽ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ളോറൻസ് പാർലിയിൽ നിന്ന് ഇന്ത്യയ്ക്കായി നിർമ്മിച്ച റഫേൽ യുദ്ധവിമാനം ഏറ്റുവാങ്ങും തുടർന്ന് റഫേൽ യുദ്ധ വിമാനത്തിൽ പരീക്ഷണ പറക്കൽ നടത്തുന്ന ശ്രീ രാജ്നാഥ് സിംഗ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുമായി വാർഷിക പ്രതിരോധ സംഭാഷണങ്ങളും നടത്തും

ഫ്രാൻസിലെ പ്രതിരോധ വ്യവസായ മേഖലയിലെ കമ്പനികളുടെ സി

ഒ

അടുത്ത വർഷം ഫെബ്രുവരിയിൽ ലക്നൌവിൽ നടക്കുന്ന ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുക്കാൻ ശ്രീ രാജ്നാഥ് സിംഗ് കമ്പനികളെ ക്ഷണിക്കും

ലഷ്കർ ഇ തോയിബ ജമാ അത്ത് ഉദ് ദവ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഹഫീസ് സയിദ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയുള്ള നടപടികളിലാണ് പാകിസ്ഥാൻ വീഴ്ച കാണിച്ചത്

എഫിന്റെ കരിമ്പട്ടിക ഭീഷണിയിലുള്ളൂ പാകിസ്ഥാന് ഈ റിപ്പോർട്ട് തിരിച്ചടിയായിരിക്കുകയാണ്

എഫ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

സെമൻസാ ബ്രിട്ടീഷ് ഗവേഷകനായ പീറ്റർ ജെ

ശരീര കോശങ്ങൾ ഓക്സിജൻ ലഭ്യതയെ തിരിച്ചറിയുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത് അനീമിയ ക്യാൻസർ തുടങ്ങിയ നിരവധി രോഗങ്ങളുടെ ചികിത്സയ്ക്കായി പുതിയ അറിവുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് മൂന്നു പേരുടെയും ഗവേഷണഫലങ്ങളെന്ന് നൊബേൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി പതിനാലായിരം യു

ഡോളർ മതിക്കുന്ന പുരസ്കാര തുക മൂന്നു പേരും പങ്കുവയ്ക്കും

ദുർഗാദേവി തിലോത്തമയുടെ രൂപം ധർച്ച് അസൂര രാജാവായ മഹിഷാസൂരനെ വധിച്ച ദിവസമാണ് മഹാനവമി എന്നാണ് ഐതിഹ്യം തിന്മയുടെമേലുള്ള നൻമയുടെ വിജയമായി നാളെ വിജയദശമി ആഘോഷിക്കും

കൊൽകത്തയിൽ നിരവധി പന്തലുകൾ മനോഹരമായി അലങ്കരിച്ച് നിർമ്മിച്ചിട്ടുണ്ട് ജലസംരക്ഷണം ശുചിത്വ സംരംഭങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകളുടെ ദോഷവശങ്ങൾ ബലാകോട്ട് വ്യോമാക്രമണം എന്നിവയെ കുറിച്ച് തയ്യാറാക്കിയ സ്റ്റേജുകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്

കൊല്ലൂർ മൂകാംബിക ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ ദേവി ക്ഷേത്രങ്ങളിലും വലിയ ഭക്ത ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കേരളത്തിൽ ആയുധ പൂജയും ഇന്നാണ്

ആഘോഷത്തിന്റെ ഭാഗമായി ഇരട്ട നഗരങ്ങളായ ഭുവനേശ്വരൻ കട്ടക് എന്നിവിടങ്ങളിൽ വലിയ പന്തലുകൾ സജ്ജീകരിച്ചു എല്ലാ വർഷത്തെയും പോലെ വിവിധ നിറങ്ങളിലുള്ള ലൈറ്റുകൾ അലങ്കരിച്ച പ്രവേശന കവാടങ്ങൾ എന്നിവ കൊണ്ട് പന്തലുകൾ വർണ്ണാഭമാക്കി

ജനങ്ങൾക്ക് വിജയവും സന്തോഷവും സമൃദ്ധിയുട്ടുളങ്ങാകട്ടെ എന്ന് തന്റെ ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു ദസ്റ്റ ഉത്സവം തിന്മയ്ക്കെതിരായി നന്മയുടെ വിജയമാണെന്നും പൈശാചിക ശക്തികളെ ഇല്ലാതാക്കുന്നതിനായി നന്മയും ഐക്യവും വളർത്തേണ്ടതുണ്ടെന്നും ശ്രീ

ഗുവാഹത്തി രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജഗദിഷ് മുഖി സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ഹർഷ്വർദ്ധൻ ഉദ്ഘാടനം ചെയ്തു